ക്യാർ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തിപ്രാപിക്കുന്നു

സംസ്ഥാനത്ത് വൃാപക മഴയ്ക്ക് സാധ്യത

ജെ

ദീപാവലി സുരക്ഷിതമായി ആഘോ്ഷ്പ്ക്കണമെന്നും പടക്കങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കണമെന്നും കഴിഞ്ഞ മൻ കി ബാതിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു

പുറംകടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബോട്ടുകൾ അടുത്തുള്ള ഹാർബറിൽ പ്രവേശിക്കണമെന്ന് നിർദേശം ഉള്ളതിനാൽ കാർവാർമലപ്പ മംഗളുരു തുടങ്ങിയിടങ്ങളിൽ ഹാർബറുകളിൽ ബോട്ടുകൾ ഗോവ അടുപ്പിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്